കൊവിഡിന്റെ ആഘാതം കുറയ്ക്കുന്നതും ഭീകരവാദത്തിനെതിരായ സഹകരണവും വാണിജ്യ ആരോഗ്യ ഊർജ്ജ മേഖലകളിലെ വികസനങ്ങളും ഉച്ചകോടി വിലയിരുത്തും രും സംസ്ഥാനത്ത് പുതുതായി കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ദിനംപ്രതി ടെസ്റ്റുകളുടെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങളും പോസിറ്റീവാകുന്നവരുടെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിലും ഉണ്ടാകുന്നുണ്ടെങ്കിലും ഓരോ ആഴ്ചയിലും തൊട്ടുമുമ്പത്തെ ആഴ്ചയിലേതിനേക്കാൾ രോഗികളുടെ എണ്ണം കുറഞ്ഞു വരികയാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വിശദാംശങ്ങളുമായി ഹബീബ് റഹ്മാൻ വോയ്സ് രും രോഗികളുടെ എണ്ണം കുറയുന്നത് ആശ്വാസകരമായ കാര്യമാണെങ്കിലും ഇതുവരെ തുടർന്നുപോന്ന ജാഗ്രതയിൽ യാതൊരു വിട്ടു വീഴ്ചയും വരുത്തരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ലോകത്തിന്റെ പലഭാഗത്തുമുള്ള അനുഭവങ്ങൾ കാണിക്കുന്നത് കോവിഡിനു രണ്ടാമതും മൂന്നാമതും തരംഗങ്ങൾ ഉണ്ടാകാം എന്നാണ് അതുകൊണ്ടുതന്നെ ഇതുവരെ നാം കാണിച്ച കരുതൽ ശക്തമായി തുടരണം തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഇതിന് ഏറെ ഗൌരവമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് ഭേദമായ ശേഷവും ശാരീരികാവശതകൾ തുടരുന്ന പോസ്റ്റ് കോവിഡ് സിൻഡ്രം പലരിലും കാണുന്നതിനാൽ രോഗം ഭേദമായവർ കൂടുതൽ ശ്രദ്ധ പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി ദ്ദേ സംസ്ഥാനത്ത് കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പത്ത് ശതമാനം കവിഞ്ഞു

ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് രോഗമുക്തരായി

ഗാന്ധിഭവൻ കൊവിഡ് പ്രാഥമികതല ചികിത്സാ കേന്ദ്രമാക്കി രും കോവിഡ് പരിശോധന കോഴിക്കോട് ജില്ലയിൽ ഏഴുലക്ഷം പിന്നിട്ടു

രും കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളജിലെ കോവിഡ് സെന്ററിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ ജീവനക്കാരനെ പൊലീസ് അറസ്റ്റ് ചെയ്തു

സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു രംഭ ജീവിത ശൈലിയേയും സമയക്രമങ്ങളേയും മാറ്റിമറിച്ച കോവിഡ് മഹാമാരി മനുഷ്യരെ അവരവരിലേക്ക് ചുരുക്കില്ലെന്ന് ചലച്ചിത്ര പ്രവർത്തകനും ദേശീയ സംസ്ഥാന അവാർഡ് ജേതാവും ഫെഫ്ക ജോയിന്റ് സെക്രട്ടറിയുമായ ബൈജു രാജ് ചേകവർ പറഞ്ഞു കോവിഡിനൊപ്പം ശീലിച്ച ജീവിത ക്രമത്തിൽ പുതിയ അവസരങ്ങൾ കണ്ടെത്തണമെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു

ഈ മാസം ആറിനാണ് അന്തിമ റിപ്പോർട്ട് നൽകിയതെന്ന് സി

ജി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി

ജി അറിയിച്ചു

ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ അദ്ധ്യക്ഷ പദവികൾ നിശ്ചയിച്ച് നവംബർ മൂന്നിന് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ മാറ്റം വരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു തുടർച്ചയായി സംവരണം ചെയ്യപ്പെടുന്നതിനാൽ സംവരണ വിഭാഗത്തിൽ ഉൾപ്പെടാത്തവർക്ക് പ്രസിഡണ്ട് ചെയർ പേഴ്സൺ പദവികൾ കിട്ടാതെ പോകുന്നത് സ്വേച്ഛാപരമാണെന്ന് കോടതി വിലയിരുത്തി രുര സംസ്ഥാനത്ത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് നാമനിർദേശി പത്രിക സമർപ്പിക്കാൻ സമയ പരിധി മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ പത്രികാ സമർപ്പണം ഊർജ്ജിതമായി മുന്നണികൾ മിക്ക ജില്ലകളിലും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും പൂർത്തിയാക്കിയതോടെയാണ് കൂടുതൽ പത്രികകൾ സമർപ്പിച്ചു തുടങ്ങിയത് തർക്കങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ അവ പരിഹരിക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികൾ ശ്രമം തുടരുകയാണ്

അടുത്ത തിങ്കളാഴ്ച പത്രിക പിൻവലിക്കാൻ സമയപരിധി തീരുന്നതോടെ മത്സര ചിത്രം വ്യക്തമാകും

ജില്ലാ പഞ്ചായത്തിൽ മൂന്ന് പത്രികകളാണ് സമർപ്പിച്ചത്

രും തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചട്ടങ്ങൾ പാലിച്ചായിരിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

പ്രചാരണ പരിപാടികൾ നിയമാനുസൃതമാണോ എന്ന് പരിശോധിക്കാൻ ആന്റി ഡീഫെയ്സ്മെന്റ് സ്ക്വാഡ് രൂപീകരിക്കുന്നതിന് ജില്ലാ കലക്ടർമാർക്ക് കമ്മീഷൻ നിർദേശം നൽകി

സ്ഥാനാർത്ഥികളുടെ യോഗ്യതകളും അയോഗ്യതയും സംബന്ധിച്ച് കമ്മീഷൻ മാർഗ നിർദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് രും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ യു ഡി എഫ്

രണ്ട് സീറ്റിലും ആർ

ഒരു ഡിവിഷനിൽ കക്ഷിരഹിത സ്ഥാനാർഥിക്ക് യു ഡി എഫ് പിന്തുണ നൽകും ദ്ദേ ഈ വർഷത്തെ മാതൃഭൂമി സാഹിത്യപുരസ്കാരത്തിന് കവി സച്ചിദാനന്ദൻ അർഹനായി മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമടങ്ങുന്നതാണ് പുരസ്കാരം രംഭ കനത്ത മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ആറ് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് യെല്ലോ അലർട്ട് കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്

രംഭ മലബാർ സംയുക്തസേനാ അഭ്യാസത്തിന്റെ രണ്ടാംഘട്ടം ഇന്നു മുതൽ വടക്കൻ അറബിക്കടലിൽ നടക്കും

എസ് നാവികസേനകളുടെ അത്യാധുനിക ജപ്പാൻ അഭ്യാസപ്രകടനങ്ങൾ രണ്ടാംഘട്ടത്തിൽ നടക്കും രും സമഗ്ര ശിക്ഷ കേരളയുടെ നേത്വത്വത്തിൽ ജാലകങ്ങൾക്കപ്പുറം ട്വിന്നിംഗ് പ്രോഗ്രാമിന് തുടക്കമായി ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ കോവിഡ് ഉണ്ടാക്കിയ ഒറ്റപ്പെടൽ മറികടക്കുന്നതിനായി ആസൂത്രണം ചെയ്ത പദ്ധതിയാണിത് രണ്ട് ബി ആർ